കൌണ്ട് ഡൌൺ പുര്യോഗമിക്കുന്നു

സന്ദർശിക്കാൻ ഇന്ത്യാക് പാ്കിസ്ഥാൻ ധാരണ കർണ്ണാടകയിൽ അനുനയ ചർച്ചകൾ തുടരുന്നു ന് മന്ത്രിസഭ നാട്ട് വിശ്വാസ വോട്ട് തേടണമെന്ന് ബി ജെ

കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുമെന്ന് ധനമന്ത്രി

ന്യൂസിലാന്റ് ഇംഗ്ലണ്ടിനെതിരെ ബാറ്റ് ചെയ്യുന്നു

സെപ്റ്റംബർ ആറിന് പേടകം സുരക്ഷിതമായി ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങും

ക്രമേണ പേടകത്തിൽ നിന്നും ഗവേഷണ പദ്ധതികൾക്കായി സജ്ജീകരിച്ച റോവർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി ചിത്രങ്ങളും വിവരങ്ങളും ശേഖരിച്ച് അയയ്ക്കും

എസ് ആർ

കർതാർപൂർ കർതാർപൂർ ഇടനാഴി നിർമ്മാണം സംബന്ധിച്ച ഇന്ത്യാ പാക് ചർച്ച വിജയകരം ഇന്ത്യാക്കാർക്ക് ഇനി മുതൽ വിസ ഇല്ലാതെ കർതാർപൂർ സാഹബ് ഗുരുദ്വാര സന്ദർശിക്കാം

വാഗ അതിർത്തിയിൽ ഇന്ന് നടന്ന ചർച്ചയിൽ ഇന്ത്യൻ സംഘത്തെ പ്രതിനിധീകരിച്ചു ആഭ്യന്തര മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി എസ്

ഡി എസ് എം എൽ

വിശ്വാസ വോട്ടിന് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി എച്ച്

കുമാരസ്വാമി പ്രഖ്യാപിച്ചിതിനു പിന്നാലെയാണ് ഭരണ മുന്നണി വിമതരുടെ പിന്തുണ ആർജ്ജിക്കാനുള്ള ശ്രമങ്ങൾ ഊർജ്ജിതമാക്കിയത് രാജിവച്ച മന്ത്രി എം

നാഗരാജുമായി കോൺഗ്രസ്സ് ഇന്നലെ സുദീർഘമായ ചർച്ച നടത്തി എന്നാൽ രാജി തീരുമാനം പുനപരിശോധിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു അതിനിടെ കുമാരസ്വാമി ഗവൺമെന്റിന് പിൻതുണ നൽകിയിരുന്ന രണ്ട് കക്ഷിരഹിത എം എൽ എ മാർ സ്പീക്കറെ കണ്ട് തങ്ങൾക്ക് പ്രതിപക്ഷത്ത് പ്രത്യേക സീറ്റ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു

ഗവൺമെന്റ് നാളെ വിശ്വാസവോട്ട് തേടണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു

ഉൌരാളുങ്കൽ ലേബർ സഹകരണസൊസൈറ്റിയുടെ ചരിത്രത്തെ കുറിച്ച് കേരള സാഹിത്യഅക്കാദമി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പ്രസാധന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി നിർമാണത്തിലെ അപാകതകളും അറ്റകുറ്റ പണികൾ നടത്താത്തും പലയിടത്തും കുടിവെള്ളം മുടങ്ങുന്ന സാഹചരൃം സൃഷ്ടിക്കുന്നതായി മന്ത്രി ചൂണ്ടിക്കാട്ടി

പാർട്ടി ഒരു പ്രതിയേയും സംരക്ഷിക്കില്ലെന്ന് കോടിയേരി തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു

യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്നു ദൃത്ത്കുകമം ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല

ക്ഷീരോത്പാദന രംഗത്ത് സ്വയം പര്യാപ്തത ലക്ഷമിട്ടും ക്ഷീരകർഷകരെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുമുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി തോമസ് ഐസക്ക് നിർവഹിച്ചു

സ്വന്തം അണികൾ തന്നെ നേതാക്കൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന അസാധാരണ സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളതെന്ന് പ്രസ്താവനയിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു

മുളയ്ക്കാത്ത വിത്ത് മാറ്റിക്കൊടുക്കാനും സബ്സിഡി ആവശ്യമായി വന്നാൽ അത് നൽകാനും ഗവൺമെന്റ് തയ്യാറാണെന്നും മന്ത്രി കുട്ടനാട്ടിൽ പറഞ്ഞു

കാഴ്ചാ പ്രശ്നങ്ങൾ കാരണം കേരളത്തിൽ ഒരു കുട്ടിയുടെയും പഠനം മുടങ്ങരുതെന്ന് മന്ത്രി പറഞ്ഞു

ഇതിന്റെ ഭാഗമായി തൃത്താലയിൽ സ്നേഹ നിള് പ്രവർത്തക സംഗമം നടന്നു

ഡി എഫ് നാളെ പഞ്ചായത്തു തലത്തിൽ നടത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ധർണ്ണ ബില്ലുകളുടെയും സ്പിൽ ഓവർ ജോലികളുടെയും പണം നൽകാതെ അധികാര വികേന്ദ്രീകരണത്ത അട്ടിമറിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നതായും യു ഡി എഫ് പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി പോലീസ് സ്റ്റേഷൻഇൻട്രോ നിയമപാലന സംവിധാനങ്ങളുടെ കേന്ദ്രീകൃത പോലീസ് സ്റ്റേഷനുകളിലൊന്നായി ഇടുക്കിയിലെ മൂന്നാർ പോലീസ് സ്റ്റേഷൻ മാറുകയാണ് ജില്ലയിലെ മുഖ്യപോലീസ് സ്റ്റേഷനായി മൂന്നാർ ഡി

പി ഓഫീസിനെ മാറ്റുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്

നേരത്തേ ടോസ് നേ്ടിയ ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ കെയ്ൻ വില്യംസൺ ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ഇരു കൂട്ടരും സെമി ഫൈനലിൽ കളിച്ച ടീമിൽ മാറ്റം വരുത്താതെയാണ് കലാശപ്പോരാട്ടത്തിനിറങ്ങിയത് ഇതിനിടെ ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ക്യാപ്റ്റനെന്ന ബഹുമതി കെയ്ൻ വില്യംസൺ സ്വന്തമാക്കി

ഇവിടങ്ങളിൽ കടൽ പ്രക്ഷുബ്പമോ അതിപ്രക്ഷുബ്പമോ ആവാൻ സാധ്യതയുണ്ട്